അമേരിക്കയും താലിബ്ാനും ദോഹയിൽ സന്ധി സംഭാഷണം ആരംഭിച്ചു

കടന്നു

രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ജനങ്ങളുമായി ശ്രീ മോദി പരിപാടിയിലൂടെ ആശയങ്ങൾ പങ്കുവയ്ക്കും

നരേന്ദ്രമോദി രണ്ടാമതും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ മൻ കി ബാത് ആണ് ഇന്നത്തേത്

പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രക്ഷേപണ്ട് മിന്താലയം ആകാശവാണി ദൂരദർശൻ യൂടൂബ് ചാനലുകളും പ്പൂരിപാടി ലൈവ് സ്ട്രീമിങ് നട ത്തും

ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം മറ്റ് പ്രാദേശിക ഭൂജ്ഷകളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാ സിമാർ ജമ്മുവിൽ എത്തിയിട്ടുണ്ട് സുരക്ഷിതവും തടസ്സ രഹിതവു മായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തി യായതായി സി ആർ

ഗണ്ടർബാൽ ജില്ലയിലെ ബാൽട്ടാൽ ബേയ്സ് ക്യാമ്പിൽ നിന്ന് ഒരു സംഘം തീർത്ഥാടകർ യാത്ര തിരിക്കും മറ്റൊരു സംഘം അനന്ദ് നാഗ് ജില്ലയിലെ പാഹൽ ഗാം ബേയ്സ് ക്യാമ്പിൽ നിന്നും യാത്ര ആരംഭിക്കും

ദോഹയിൽ അമേരി ക്കയും താലിബാനും തമ്മിൽ നടത്തിയിട്ട് ഏഴാം വട്ട ചർച്ചയ്ക്കിടെ യാണ് പുതിയ ഉടമ്പടിയിലെത്താൻ ധ്യാർണ്യായത് ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങൾ വിദ്ദേശ രാജ്യങ്ങളിലെ സൈനികരുടെ അഫാഗാനിസ്ഥാനിലെ സ്വാന്നികൃം അഫ്ഗാനിസ്ഥാനുമായുള്ള ചർച്ച സ്ഥിരമായി വെടി നിർത്തിൽ പ്രഖ്യാപനം തുടങ്ങി നാല് വിഷയങ്ങളി ലാണ് പുതിയ ഉടമ്പടിയിലെത്തുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഇൌ വർഷം സെപ്തംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നേ ഉടമ്പടി പ്രാബല്യത്തിൽ വരുത്താനാകുമെന്ന് പ്രതീഷിക്കുന്ന തായി യു

അഫ്ഗാൻ താലിബാൻ സമാ ധാന കരാർ സെപ്തംബർ ഒന്നിന് മുന്നേ പ്രാബലൃത്തിൽ വരുമെന്ന് കാബൂളിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച സന്ദർശനത്തിനെത്തിയ യു

സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ അറിയിച്ചിരുന്നു

പദ്ധതി അനുസരിച്ച് ചെടികൾ നട്ടു പിടിപ്പിച്ചും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയും വിദ്യാർത്ഥികൾ ക്യാമ്പസുകളെ ഹരിതാഭമാക്കും

പരിസ്ഥിതി സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ നല്കുന്ന സംഭാവന അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സമാനമായ മറ്റൊരു പദ്ധതി വൈകാതെ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു

രാജ്യത്ത് ശുചിത്വപൂർണമായ ക്യാമ്പസുകൾ ഉറപ്പു വരുത്തുവാൻ പരിസ്ഥിതി മന്ത്രാലയം കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്നും ശ്രീ

ന്യൂസ് ഡസ്ക് ആകാശവാണി

സന്താൾ വിഭാഗം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെയും സമീന്ദാരീ സംവിധാനത്തി നെതിരെയും പോരാടിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് സംസ്ഥാനത്ത് ഈ ദിനം ആചരിക്കുന്നത്

പ്രീണനങ്ങൾ കൂടാതെ എല്ലാവരുടെയും അന്തസിനും ശാക്തീകരണത്തിനുമായി കേന്ദ്രം ശ്രമിക്കുന്നതായും അദ്ദേഹം മുംബൈയിൽ അറിയിച്ചു രണ്ട് ലക്ഷത്തോളം മുസ്ലീങ്ങൾ സബ്സിഡി ആനുകൂല്യം കൂടാതെ ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം

ഇന്ന് ബെർമിങ്ഗാമിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എല്ലാവർക്കും ്യൂക് തുല്യമാക്കാനാണ് കായിക മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കു്ന്നത്

മോശം കാലാവസ്ഥയും കനത്ത മഴയേയും തുടർന്ന് സംഘം പ്രദേശത്ത് അകപ്പെട്ട് പോകുകയായിരുന്നു

രാജ്യത്തെ പരമാധികാരവും ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വിവിധ തട്ടുകളിലായുള്ള സുരക്ഷാ പദ്ധതിയാണ് ശ്രീലങ്കൻ പ്രതിരോധ മന്ത്രാലയം വിഭാവനം ചെയ്യുന്നത് മികച്ച ഭരണ നിർവ്വഹണത്തിനും രാജ്യ സുരക്ഷയ്ക്കും ഇതുകുന്ന എഴു ഘടകങ്ങൾ കണ്ടെത്തിയതായി മന്ത്രാലയം അറിയിട്ടു്